കോൺഗ്രസ്സ് അക്ട്ട്ക്ഷൻ രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് ഉത്തരാഖണ്ഡിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

നിയസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കീം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഊർജ്ജിതമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമേദി ഇന്ന് ഒഡീഷയിലെത്തും സൊണെപൂരിലും സുന്ദർഗറിലും രണ്ട് പൊതുയോഗങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

ജെ

ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്ടിലാണ്

ലോക്സഭാ തെരെഞ്ഞെടുപ്പ് വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ചുള്ള മാർഗ്ഗരേഖകളും തെരെഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാർക്കും കൈമാറി സമ്മതിദായകരുടെ ജാതിയും സമുദായ വികാരവും ഉപയോഗപ്പെ ടുത്തിയുള്ള വോട്ടഭ്യർത്ഥന നടത്തരുതെന്നും കമ്മീഷൻ നിർദേശിച്ചു

ജെ

ദേശീയ അധ്യക്ഷനുമായ അമിത് ഷാ തെരെഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു അഹമ്മാദാബാദിലെ സർഗഞ്ച് ഗാമിൽ നിന്ന് രാവിലെ ഒൻപത് മണിക്ക് റോഡ് ഷോയോടെയാണ് അദ്ദേഹം പ്രചരണത്തിന് തുടക്കം കുറിച്ചത് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളായ മകർബ സർഗഞ്ച് രോസ വെജൽപൂർ ശ്യാമൽ ജോദ്പുർഗാം മാൻസി എന്നിവിടങ്ങളിലാണ് ശ്രീ അമിത് ഷാ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിച്ചത്

ജെ

തുടർന്ന് വൈകിട്ട് റാണിപ് സബർമതി രാംനഗർ മേഖലകളിലും ശ്രീ അമിത് ഷാ റോഡ് ഷോ നടത്തും

രാജീവിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ഇത്തരം നിലപാട് ആവർത്തിച്ചാൽ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി

അതിലൊന്ന് മാലെദ്വീപ് നിവാസികൾ വസിക്കുന്ന തിരുവനന്തപുരമാണ് മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദും അബ്ദുള്ള യമീനും തമ്മിലാണ് പ്രധാനപോരാട്ടം നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹീം മുഹമ്മദ് സൊലിഹിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഭരണ സ്ഥിരത ഉറപ്പാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നിർണ്ണായകമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു പ്രത്യേക്ക് സ്മുദായത്തിനെതിരായ വിദ്ധേഷം വ്യാപി പ്പിക്കുന്ന വീഡിയോകളൂട്ടെ നിർമ്മാണത്തിനായി ഫണ്ട് കൈമാറ്റം ചെയ്ത് നായ്ക്കിനെ സഹായിച്ചെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം

പാരമ്പര്യമനുസരിച്ച് പുതുവർഷത്തിന്റെ തുടക്കവും വേനലിന്റെ വരവും ആണ് ഈ ആഘോഷങ്ങൾ കൊണ്ടു വരുന്നതെന്നും സമൃദ്ധിയും സുഖവും ഉണ്ടാകട്ടെയെന്നും അദ്ദേഹം ഒരു സന്ദേശത്തിൽ ആശംസിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ജനങ്ങൾക്ക് ഉത്സവ ആശംസകൾ നേർന്നു

ജെ

സ്ഥാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

ജെ

ഫെബ്രുവരി മുതൽ ഇത് മൂന്നാം തവണയാണ് ഇരുടീമുകളും നേർക്കുനേർ വരുന്നത് ഇന്ത്യയ്ക്കും മ്യാൻമാറിനും നിലവിൽ തുല്യ പോയിന്റാണുള്ളത്

അഞ്ച് മത്സരങ്ങളുള്ള ടൂർണമെന്റിലെ മൂന്നാം മത്സരം തിങ്കളാഴ്ചയാണ് ഇന്ത്യൻ ടീമിന്റെ എട്ട് ദിവസം നീളുന്ന മലേഷ്യൻ ടൂർ നയിക്കുന്നത് വൈസ് കൃാപ്റ്റൻ ദീപ് ഗ്രേസ് എക്കയും എയ്സ് ഗോൾ കീപ്പർ സവിതയുമാണ്

ക്ര്വൈകിട്ട് നാലിന് ചെന്നൈയിലാണ് മത്സരം മറ്റൊരു മത്സരത്ത്ചിൽ സൺറൈസേഴ്സ് ഹൈദ്രാബാദ് മുംബൈ ഇന്ത്യൻസ്ക്മാ്യി ഏറ്റുമുട്ടും രാത്രി എട്ടിന് ഹൈദ്രാബാദിലാണ് മത്സരം

അമ്മയുടെ സുഹൃ ത്തായ പ്രതി തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദ് പോലീസ് കസ്റ്റഡിയിലാണ് മാധ്യമ വാർത്തകളുടെ അടി സ്ഥാനത്തിൽ ഹൈക്കോടതിയും സംഭവത്തിൽ സ്വമേധയാ കേസ്സെടുത്തിട്ടുണ്ട്

ആന്ട്വല്ലിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തിരൂ്പ്പനന്ത്പുരം വെള്ളായണിയിലെ വീട്ടു വളപ്പിൽ നടക്കും